ടി ് ക്യൂവസായ മേഖലകളോട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആവശ്യ്പ്പെട്ടു പൊതുജനപങ്കാളിത്തത്തിലാണ് ഗവൺമെന്റ് പദ്ധതികളുടെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഐ ടി ഇലക്ട്രോണിക് നിർമ്മാണ മേഖലയിലെ വിദഗ്ധരുമായും വ്യാവസായിക നേതാക്കളുമായും ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി

രാജ്യത്ത് കഷ്ടത അനുഭവിക്കുന്ന പൌരൻമാരുടെ ഉന്നമനത്തിനും പുരോഗതിയ്ക്കും ഉതകുന്ന ഒട്ടേറെ നടപടികൾ സ്വീകരിക്കാൻ വ്യവസായികൾക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

അതുകൊണ്ടുതന്നെ വ്യവസായികളെ കുറ്റപ്പെടുത്തുന്ന സംസ്കാരത്തോട് തനിക്ക് യോജിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

തങ്ങളുടെ നികുതി പണം ഗവൺമെന്റ് കൃത്യമായി വിനിയോഗിക്കുമെന്ന അവരുടെ വിശ്വാസമാണ് ഇതിന് പിന്നിലുള്ളത് അന്താരാഷ്ട്രതലത്തിൽ ഉയരുന്ന എണ്ണ വിലയെ നേരിടാൻ രാജ്യത്തെ പൌരൻമാർ ഇല്ക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്ലോവാക്കിയ സിംഗപ്പൂർ റൊമേനിയ എന്നീ രാജ്യങ്ങളിലെ ഗായകർ ആലപിച്ച ഭജന്റെ പതിപ്പ് ശ്രീ

കൂറുമാറ്റ നിരോധന നിയമപ്രകാരമായിരുന്നു സ്പീക്കറുടെ നടപടി

സമാധാനപൂർണമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ആവശ്യമായ സുരക്ഷാസേനയെ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സുബ്രത് സാഹൂ ആകാശവാണിയോട് പറഞ്ഞു

കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ മനേകാ ഗാന്ധി തുടങ്ങിയവർ അംഗങ്ങളാണ് ലൈംഗിക പീഡന സംഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ നിലവിലുള്ള നിയമം കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമിതി ശുപാർശ ചെയ്യും

സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ബാരാമുള്ള ജില്ലയിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വോയിസ് ബി എസ് സിക്സ് ഇന്ധന്റ് മൂർഗ്ഗദണ്ഡ പ്രകാരമുളള വാഹനങ്ങൾ മാത്രമേ വിൽക്കാൻ കുഴിയൂവെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു

വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയുടെ അളവ് നിശ്ചയിക്കുന്ന മാനദണ്ഡമാണ് ബി

രാജ്യത്തെ പൊതുജനാരോഗ്യം വിഷയത്തിൽ വിട്ടുവീഴ്ച സാധ്യമല്ലെന്നും ചില വാഹനനിർമ്മാതാക്കളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ ഇതിൽ കടന്നുകൂടുന്നത് അംഗീകരിക്കാനാവിലെലന്നും പരമോന്നത കോടതി വൃക്തമാക്കി

നിരവധി വിശിഷ്ട വൃക്തികളുടെ സാന്നിധൃത്തിൽ അസ്സം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ മേള ഉദ്ഘാടനം ചെയ്യും

മേളയുടെ ഭാഗമായി പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മോസ്കോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് ദശാബ്ദം പഴക്കമുള്ള ആണവ ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിൻമാറാൻ ഇടയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പറഞ്ഞത് ആഗോളതലത്തിൽ ആശങ്കകൾക്ക് ഇടയാക്കിയിരുന്നു യൂറോപ്പിൽ പുതിയ മിസൈലുകൾ സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ ഏത് നീക്കത്തോടും റഷ്യ ശക്തമായി പ്രതികരിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി

തുർക്കി പ്രസിഡന്റ് ഏർദോഗാനുമായി അദ്ദേഹം ടെലിഫോൺ ചർച്ച നടത്തുകയും ചെയ്തു തുർക്കിയുമായി നിലവിലുള്ള് ബന്ധത്തിൽ ഖഷോഗിയുടെ കൊലപാതകം പ്രശ്നിങ്ങൾ സൃഷ്ടിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ഇസ്താംബൂളിലെ സൌദി നയതന്ത്രകാര്യാലയത്തിനുള്ളിൽ വച്ചാണ് മാധ്യമപ്രവർത്തകനായി ഖഷോഗി കൊല്ലപ്പെട്ടത്

നിലവിലെ സാഹചരൃത്തിൽ ആയിരത്തോളം റോഹിങ്ക്യൻ വംശജർ ബംഗ്ലാദേശിലേക്ക് ഇപ്പോഴും പലായനം ചെയ്യുകയാണെന്നും മ്യാൻമറിലെ ഐക്യരാഷ്ട്ര അന്വേഷണ സംഘം പ്രതിനിധി മാർസുകി ഡാരുസ്മാൻ ഇന്നലെ ഐക്യരാഷ്ട്ര സഭയിൽ അറിയിച്ചു

എക്സ്പ്രസ്സ് ട്രെയിനും രണ്ട് പ്രാദേശ്രിക് ്ട്രെയിനുകളും ഒരേ സമയം സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ് തിരക്കിന് കാരണമായത് സംഭവത്തെ തുടർന്ന് ഉണ്ണ്യിക്കപ്പെട്ട എല്ലാ പരാതികളും കമ്മിറ്റി പരിശോധിക്കുമെന്ന് തെക്കുകിഴക്കൻ റെയിൽവേ വക്താവ് അറിയിച്ചു

പുരുഷ സിംഗിൾസ് ഫൈനലിൽ അഞ്ചാം സ്വീഡിലുള്ള ശ്രീകാന്ത് ദക്ഷിണകൊറിയൻ താരമായ ലീഡോങ് കിയുനുമായി ഏറ്റുമുട്ടും